രവീ ന്ദ്രനാഥ്

വ്യാകരണപരമായ ആശയക്കുഴപ്പമാണ് സുപ്രിംകോടതി വിധി യിലെ തെറ്റായ പരാമർശത്തിന് കാരണമായതെന്നും കേന്ദ്രം വിശ ദീകരിച്ചു കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഗവൺമെന്റ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന ആരോപണവുമായി രംഗത്തു വന്നതിനെ തുടർന്നാണ് കേന്ദ്രം തിരുത്തൽ അപേക്ഷ നൽകിയ ത് ഗവർണമെന്റ് സ്കൂളുകൾക്ക് നൽകുന്ന സഹായങ്ങൾ എയ് ഡഡ് സ്കൂളുകൾക്ക് കൂടി ലഭ്യമാക്കുമെന്ന് മന്ത്രി പ്രൊഫ സി രവീന്ദ്രനാഥ് പറഞ്ഞു പാലക്കാട് പനയൂർ ടി

യു പി സ്കൂ ളിൽ പുതിയ കെട്ടിടത്തിന്റെയും ഹൈടെക് ക്ളാസ് മുറികളുടെ യും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പി യുപി സ്കൂളുകളും ഹൈടെക് ആക്കുമെന്നും മന്ത്രി പറഞ്ഞു ൃ പാലക്കാട്ട് വെള്ളിനേഴി ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിനെ സംസ്ഥാനത്തെ ആദ്യ സർഗവിദ്യാലയമായി മറ്റൊരു ചടങ്ങിൽ മന്ത്രി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഓരോ സ്കൂളുകൾ സർഗവിദ്യാലയമാക്കി മാറ്റു മെന്ന് മന്ത്രി അറിയിച്ചു മാവേലി സ്റ്റോറുകൾ ഇല്ലാത്ത മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങ ളിലും അവ തുടങ്ങുമെന്ന് മന്ത്രി പി

അളവ് തൂക്ക വകുപ്പ് പരാതികൾ സ്വീകരിക്കാൻ കോൾ സെന്റുകളിൽ സൌകര്യമേർപ്പെടുത്തിയിട്ടുണ്ടെന്നും മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ മന്ത്രി അറിയിച്ചു

വൻകിട ഉപഭോക്താക്കളിൽ ഭാരത് പെട്രോളിയം കോർപ്പ റേഷൻ കൊച്ചിൻ റിഫൈനറി അപ്പോളോ ട്യേഴ്സ് എന്നി വർക്കാണ് അവാർഡ് ഇടത്തരം ഉപഭോക്താക്കളിൽ മിൽമ ഡയറി വയനാടും ചെറുകിട വിഭാഗത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേ ഷന്റെ കൊച്ചിയിലെ ബോട്ട്ലിംഗ് പ്ലാന്റും അവാർഡിന് അർഹ രായി കെട്ടിടങ്ങളിൽ എറണാകുളം ലിസി ആശുപത്രിയും പൂവാർ ഐലന്റ് റിസോർട്ടും അവാർഡ് നേടി വ്യക്തിഗത വിഭാഗത്തിൽ കണ്ണൂർ കൂടാളിയിലെ പി കെ ബൈജുവിനാണ് അവാർഡ് സ്ഥാപന വിഭാഗത്തിൽ കോഴിക്കോട് മാളിക്കടവ് ഗവൺമെന്റ് ഐ ടി ഐ ഫോർ വിമൻ എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് എന്നിവയ്ക്കും അവാർഡ് ലഭിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സംസ്ഥാന കോൺഗ്ര സിൽ പുനസംഘടന നടത്താൻ കെ

വനിതാ മതിലിനെതിരായ പ്രചാരണം ശക്തമാക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു

ഉച്ചയ്ക്ക് ശേഷം കാസർകോട് മുൻസിപ്പൽ സ്റ്റേഡിയ ത്തിൽ ഹിന്ദു സമാജോത്സവം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ആദിത്യനാഥിന്റെ സന്ദർശനത്തോടു ബന്ധപ്പെട്ട് വൻ പൊലീസ് സുരക്ഷ കാസർകോട്ട് ഒരുക്കിയിട്ടുണ്ട് സൌദി അറേബൃയിലേക്ക് പോകുന്ന കേരളത്തിലെ ഉദ്യോഗാർഥി കൾക്ക് സൌദി എംബസി സാക്ഷ്യപ്പെടുത്തൽ സേവനം നാളെ മുതൽ നോർക്കാ റൂട്ട്സ് വഴി ലഭ്യമാവുമെന്ന് ചീഫ് എക്സിക്യൂ ട്ടീവ് ഓഫീസർ അറിയിച്ചു

കേരളത്തിലെ സർവകലാശാലാ ് സർടിഫിക്കറ്റുകൾ മാത്രമായി രിക്കും സാക്ഷ്യപ്പെടുത്തി നൽകുന്നത് ബംഗാൾ ്ഉൾക്കടലിൽ രൂപം കൊണ്ട പെയ് തി ചുഴലിക്കാറ്റ് നേരിടാൻ ആന്ധ്രപ്രദേശ് ഗവൺമെന്റ് മുൻകരുതൽ ശക്തമാക്കി നാളെ ഉച്ചയോടെ ഓങ്കോളിനും കാക്കിനഡയ്ക്കും ഇടയിലൂടെ ചുഴലിക്കാറ്റ് തീരം കടക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ നിന്ന് മീൻപിടുത്തക്കാർ മട ങ്ങണമെന്നും കാലാവസ്ഥാ കേന്ദ്രം ആവശ്യപ്പെട്ടു ശബരിമല ദർശനത്തിനെത്തിയ നാല് ട്രാൻസ്ജെൻഡറുകളെ എരുമേലിയിൽ പൊലിസ് തിരിച്ചയച്ചു സ്ത്രീ വേഷത്തിൽ ശബ രിമലയിലേക്ക് പോയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വേഷം മാറണമെന്നും പൊലീസ് ആവശ്യപ്പെട്ടെങ്കിലും ട്രാൻസ്ജെൻഡേ ഴ്സുകൾ തയാറായില്ല ഇതേതുടർന്ന് നാലുപേരെയും പൊലീസ് സംരക്ഷണത്തിൽ കോട്ടയത്തേക്ക് തിരിച്ചയക്കുകയായിരുന്നു ശബരിമലയിൽ മൊബൈൽഫോണിന് വിലക്കേർപ്പെടുത്തു മെന്ന് പൊലീസ് അറിയിച്ചു ഫോൺ കൊണ്ടുപോകുന്നത് നിയ ന്ത്രിക്കും മൊബൈൽ ഫോണുകൾ വലിയ നടപ്പന്തലിലെ പ്രത്യേക കൌണ്ടറിൽ വാങ്ങി സൂക്ഷിക്കും സന്നിധാനത്ത് മാധ്യ മങ്ങൾക്കും നിയന്ത്രണമേർപ്പെടുത്തും വർഷത്തിൽ ഏഴ് ദിവസം മാത്രമേ തിരുമുറ്റത്ത് ഫോട്ടോ എടുക്കാനനുവദിക്കൂ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ദേവസം ബോർഡ് പ്രസി ഡന്റ് പറഞ്ഞു ശബരിമലയിൽ ഇന്നും വൻ തീർഥാടക തിരക്ക് ഓരോ ദിവ സവും പന്തീരായിരത്തോളം തീർഥാടകരുടെ വർധനയാണ് പമ്പാ പൊലിസ് കൺട്രോൾ റൂമിൽ രേഖപ്പെടുത്തുന്നത്

ശബരിമല സന്നിധാനത്ത് പൊലീസിന്റെ മൂന്നാം ബാച്ച് ചുമത ലയേറ്റു കോഴിക്കോട് റൂറൽ എസ്പി ജി ജയദേവാണ് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ

ഐഎസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ്സിയെ നേരിടും

ഭുവനേശ്വറിൽ ലോക കപ്പ് പുരുഷ് ഹോക്കി ഫൈനലിൽ ബെൽജിയം ഇന്ന് നെതർലന്റിനെ നേരിടും വൈകീട്ട് ഏഴിനാണ് മത്സരം കേരളത്തെ ചരിത്രത്തിന്റെ ഭാഗമായി അടയാളപ്പെടുത്തുന്ന സംഭ വമായിരിക്കും വനിതാമതിലെന്ന് മന്ത്രി എ

് ജനുവരി ഒന്നിലെ വനിതാ മതിൽ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ചരിത്ര സംഭവമായി മാറുമെന്ന് മന്ത്രി എം

ഇടുക്കി ജില്ലാതല സംഘാടകസമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സമൂഹത്തിലെ അംഗങ്ങളെന്ന നിലയിൽ കുട്ടികളെ അംഗീക രിക്കുകയും അവരുടെ അവകാശങ്ങൾ സമ്മതിച്ചുകൊടുക്കു കയും വേണമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിർദേശിച്ചു തദ്ദേ ശസ്വയം ഭരണ ബാല സംരക്ഷണ സമിതികളുടെ ശാക്തീകരണം സംബന്ധിച്ച ജില്ലാതല ശിൽപശാല കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തിരുവനന്തപുരത്തെ ഹിന്ദു ദിനപത്രം സിനീയർ അസിസ്റ്റന്റ് എഡിറ്റർ മഹാദേവൻ നിര്യാതനായി

കർണാടക സംഗീത ആസ്വാദകനും നിരവധി ഡോക്യു മെന്ററികളുടെ ശബ്ദം നൽകിയ കലാകാരനുമായിരുന്നു അദ്ദേ ഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയടക്കം പ്രമുഖർ മഹാദേവന്റെ നിര്യാണത്തിൽ അനു ശോചനം അറിയിച്ചു ആകാശവാണിയിൽ അറബി വാർത്തകൾ ഉൾപെടുത്തണമെന്ന് സംസ്ഥാന ഹജ്ജ്കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ആവ ശ്യപ്പെട്ടു കോഴിക്കോട് വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച അറ ബിക് സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ യാണ് അറബിയെന്നും ഇത് മുസ്ലിങ്ങളുടെ മതപരമായ ഭാഷ മാത്രമല്ലെന്നും മുഹമ്മദ് ഫൈസി പറഞ്ഞു അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ കാഞ്ചീരവം കലാവേദിയുടെ ശ്രവണശ്രീ അവാർഡുകൾ പ്രഖ്യാ പിച്ചു നീണ്ടകാലം റേഡിയോ കേൾക്കുകയും മറ്റുള്ളവരെ റേഡിയോ കേൾക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവർക്കാണ് അവാർഡ് നകുന്നത് ചേർത്തലയിലെ ബാവാസ് മുട്ടത്തിപ്പറമ്പും തിരുവനന്തപുരത്തെ തങ്കമണി പരമേശ്വരനുമാണ് ഈ വർഷത്തെ അവാർഡുകൾ അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സുഹൃദ് സംഗമം ബക്കളം എ കെ

സുരേന്ദ്രൻ നീലേശ്വരം അനുസ്മരണവും അവാർഡ് ദാനവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ദൃശ്യ മാധ്യമ അവാർഡ് റിപ്പോർട്ടർ ടിവി ന്യൂസ് എഡിറ്റർ അഭിലാഷ് മോഹ നും ശെൽവരാജ് കയ്യൂർ സ്മാരക ഫോട്ടോഗ്രാഫി അവാർഡ് മാതൃഭൂമിയിലെ എൻ രാമനാഥ്പൈക്കും മന്ത്രി സമ്മാനിച്ചു ൃ ആറളം ഫാമിലെ കാട്ടാന ശല്യം പരിഹരിക്കാൻ പുനരധിവാസ മേഖലയ്ക്കും ്വന്യജീവി സങ്കേതത്തിനുമിടയിൽ കോൺക്രീറ്റ് ഭിത്തി നിർമിക്കണമെന്ന് ആവശൃപ്പെട്ട് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയാരജൻ മന്ത്രി എ

നേരത്തെ നിർമിച്ച കരിങ്കൽ മതിലും കമ്പി ഉപയോഗിക്കാത്ത കോൺക്രീറ്റും കാട്ടാനകൾ തകർക്കുകയാണെന്ന് നിവേദനത്തിൽ പറയുന്നു

രാ വിലെ പാലക്കാട് കോട്ടമൈതാനത്തു നിന്നാരംഭിക്കുന്ന നെല്ലി യാമ്പതിയിലേക്കുള്ള സഞ്ചാരികളുടെ യാത്ര എം

രാജേഷ് എം പി ഫ്ളാഗ് ഓഫ് ചെയ്യും

ഹർത്താലിനെ തുടർന്ന് പലർക്കും നിക്കുതി അടയ്ക്കാൻ കഴി യാത്ത സാഹചര്യത്തിലാണിത് മലയാളത്തിൽ പുതിയ ഭാവുകത്വം സൃഷ്ടിച്ച എഴുത്തുകാര നാണ് എം ടി വാസുദ്ദേവൻ നായരെന്ന് പ്രൊഫ

കെ സാനു വിലയിരുത്തി കോഴിക്കോട്ട് ചാവറ സംസ്കൃതി പുരസ്കാരം എം ടിക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂല്യങ്ങളെ മുറുകെ പിടിക്കുകയും ആചാരങ്ങളെ കാലോചിത മായി പരിഷ്കരിക്കുകയുമാണ് വേണ്ടതെന്ന് റിട്ട ജസ്റ്റിസ് കെമാൽ പാഷ കോഴിക്കോട്ട് പറഞ്ഞു

രാവിലെ മുൻമന്ത്രി കെ എം മാണി ഉദ്ഘാടനം ചെയ്യും ഇടുക്കി മാങ്കുളം സിങ്ക്കുടിയിൽ കാട്ട്പോത്തിന്റെ വെട്ടേറ്റ് ഫോറസ്റ്റ് വാച്ചർ മരിച്ചു